എൽ എ

വൈകിട്ട് ആറിന് നിയമസഭാ സ്പീക്കറുടെ മുന്നിൽ ഹാജരായി രാജി തീരുമാനം അറിയിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം

ജെ

നിയമസഭാ കക്ഷി യോഗം ഇന്ന് ബംഗളൂരുവിൽ

യിൽ ചേർന്ന കോൺഗ്രസ് എം എൽ എ

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രണ്ടാം സെമി നിലവിലെ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും

എൽ എ മാരോട് ഇന്ന് വൈകിട്ട് ആറിന് നിയമസഭാ സ്പീക്കർക്ക് മുമ്പാകെ ഹാജരായി രാജി തീരുമാനം അറിയിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം

എൽ എ

എൽ എ മാർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാൻ കർണാടക പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകി

എൽ

മാരുടെ രാജികാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കാനും സ്പീക്കർക്ക് പരമോന്നത നീതിപീഠം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാളെ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടിക്കൾ അ്റിയിക്കാനും കോടതി സ്പീക്കറോട് ആവശ്യപ്പെട്ടു

ജെ

യിൽ കർണാടക നിയമസഭാ കക്ഷിയോഗം ഇന്ന് ബംഗളൂരൂവിൽ രാഷ്ട്രീയ സ്ഥിതി ഗതികൾ വിലയിരുത്തും

കുമാരസ്വാമിയും രാജി സമർപ്പിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ യോഗം ചർച്ച ചെയ്യും ഭൂരിപക്ഷ്ം നഷ്ടപ്പെട്ട കുമാരസ്വാമി മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരാൻ അവകാശം ഇല്ലെന്നും നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെപി പ്രതിനിധി സംഘം ഇന്നലെ ഗവർണറെ കണ്ടിരുന്നു

എൽ എ മാരുടെ രാജി നിയമസഭാ സ്പീക്കർ മനപൂർവ്വം സ്വീകരിക്കാതിരിക്കുകയാണെന്നും പ്രതിനിധി സംഘം ചൂണ്ടിക്കാട്ടി

ജെ

എൽ എ മാർ ഇന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും ഇന്നലെയാണ് ഗോവയിൽ പത്ത് കോൺഗ്രസ് എംഎൽഎമാർ ബി ജെ

എമാരുടെയും ഇത് സംബന്ധിച്ച കത്ത് ലഭിച്ചതായും ബി ജെ

ഇതോടെ ഗോവ നിയമസഭയിലെ ബി ജെ

മൂന്നംഗ മധ്യസ്ഥ സമിതിയിലെ അധ്യക്ഷൻ ജസ്റ്റിസ് എഫ്

നാല് മാസം മുമ്പ് അയോധൃയിലെ ഭൂമി തർക്ക വിഷയം മധ്യസ്ഥ ചർച്ചയ്ക്ക് വച്ചതിന് ശേഷം ഇതാദ്യമായാണ് കോടതി കേസ് പരിഗണിച്ചത്

വിശദാംശങ്ങളുമായി ശ്രീലത പത്തോ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഏകീകൃത തൊഴിൽ നിയമം ബാധകമാകും തൊഴിൽ ഇടങ്ങളിലെ സുരക്ഷ തൊഴിലാളികളുടെ ആരോഗ്യം തൊഴിൽ ചെയ്യാനുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തുക തുടങ്ങിയവ ലക്ഷ്യമാക്കിയാണ് നിയമങ്ങൾ ഏകീകരിക്കുന്നത്

കൂടുതൽ തൊഴിലാളികളെ ്ര ജോലിക്ക് നിയമിക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രവർത്തനങ്ങൾ ലാഘൂക്രിക്കുന്നതിന് ഏകീകൃത ലൈസൻസ് സമ്പ്രദായവും ഏർപ്പെടുത്തും

നട്ട്പ്പ് സമ്മേളനത്തിൽ തന്നെ ബില്ലുകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും അവതരിപ്പിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജൂലായ് ഒന്നു മുതൽ തുടങ്ങിയ വാർഷികയാത്രയിൽ ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് യാത്രക്കാർ ഗുഹാ ക്ഷേത്രത്തിലെ ശിവലിംഗ ദർശനം നടത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ പാക് സേന വെടിനിർത്തൽ കരാർ ലംഘിച്ചു

ഇൻഡ്യൻ സൈനൃം ശക്തമായി തിരിച്ചടിച്ചു

ഇന്ത്യൻ ഭാഗത്തു നിന്നും ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

വിവര സാങ്കേതിക മേഖലയിലും മറ്റ് വിദഗ്ദ്ധ മേഖലയിലും ജോലി ചെയ്യുന്ന പതിനായിരകണക്കിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് തീരുമാനം പ്രയോജനം ചെയ്യും അമേരിക്കയിൽ സ്ഥിരമായി താമസിച്ച് ജോലി ചെയ്യുന്നതിന് അനുവാദം നൽകുന്നതാണ് ഗ്രീൻകാർഡുകൾ ബിൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ സെനറ്റിലും പാസാകണം

ഇന്നത്തെ സെമിയിലെ വിജയി ഫൈനലിൽ ന്യൂസിലാന്റിനെ നേരിടും

എജ്ബാസ്റ്റനിൽ ഇന്ത്യൻ സമയം മൂന്നു മണിക്കാണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ പോരാട്ടം പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയും മൂന്നാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം ക്രിക്കറ്റ് ആരാധകർ ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്

ജോണി ബെയർസ്റ്റോ ജെയ്സൺ റോയ് സഖ്യത്തിന് മികച്ച തുടക്കം നൽകാനായാൽ ഇംഗ്ലണ്ടിന് ഓസീസിനെതിരെ കൂറ്റൻ സ്കോർ ഉയർത്താനാകും

അതേസമയം ലോകകപ്പ് സെമിഐനലിൽ ഇതുവരെ ഓസീസ് തോറ്റ ചരിത്രമില്ല കളിച്ച് ഏഴ് സ്റ്റെഫൈനലിലും വിജയിച്ച് ഓസ്ട്രേലിയ ഏഴുവട്ടം ഫൈനലിൽ എത്തിയിട്ടുണ്ട്

പരാജയപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സെമിയിൽ ഫെഡറർ നദാലിനെയും ജോക്കോവിച്ച് അഗട്ടിനെയും നേരിടും

ഏഴ് തവണ ചാമ്പ്യനായ സെറീന വില്യംസ് ചെക്ക് താരം ബാർബോറ സ്ട്രിക്കോവയെയും സിമോണ ഹാലപ്പ് ഉക്രൈയിനിന്റെ എലീന സ്വിറ്റോലീനയെയും നേരിടും

ജനസംഖ്യാ വർദ്ധനവിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ആഗോളതലത്തിൽ ബോധവൽക്കരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്ര സഭ ഈ ദിനം ആചരിക്കുന്നത്

ബി

ഇന്ദിരയും ഭർത്താവ് ആനന്ദ് ഗ്രോവറും ചേർന്ന് നടത്തുന്ന സന്നദ്ധ സംഘടനയുടെ ഓഫീസിലും റെയ്ഡ് നടത്തുന്നു ജയ്സിങ്ങിന്റെ നിസാമുദീനിലെ വസതിയിലും മുംബൈയിലെ ജങ്ങ്പുരയിലെ ഓഫീസിലും ഇന്ന് പുലർച്ചെ മുതലാണ് സി ബി ഐ റെയ്ഡ് ആരംഭിച്ചത് വിദേശ സംഘടനയിൽ നിന്ന് സംഭാവനകൾ നിയമ വിരുദ്ധമായി സ്വീകരിച്ചുവെന്ന് ആരോപിച്ച് ഗ്രോവറിനെതിരെ സി ബി ഐ കേസെടുത്തിരുന്നു

പ്രത്യേക നഗരത്തിൽ ഉറപ്പാക്കുന്നതിന് ശുചീകരണ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങള പ്രത്യേക സ്കാഡ് നിരീക്ഷിക്കും

പ്രപ്യാൻമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഗ്രാമസഭകൾ വീളിച്ചുകൂട്ടി ജലസംഭരണത്തിനും സംരക്ഷണത്തിനും നിരവിധി നടപടികളാണ് ഗ്രാമത്തലവന്മാർ കൈക്കൊള്ളുന്നത്

അടുത്ത മൂന്നു ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു